വ്രതശുദ്ധിയുടെ നിറവിൽ ന്റാള്ളൂചെറിയ പെരുന്നാൾ എല്ലാ മലയാളികൾക്കും ഗ്ര്വർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണ്റായി വിജയനും ആശംസകൾ നേർന്നു ആഘോഷങ്ങൾ വീടുകളിൽ തന്നെ ഒതുക്കണമെന്ന് മുഖ്യമ്ത്രന്തി

തെക്ക് കിഴക്കൻ അ്റബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനിടയുളളതിനാൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത

കേരള കർണ്ണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് മുന്നറിയിപ്പ്

എറണാകുളം മലപ്പുറം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

സിആർ ഫലം വൈകുന്നതായ വാർത്തകൾ നിലവിലുണ്ടെന്നും ഈ സാഹചര്യത്തിൽ ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവായതിനുശേഷ്വും രോഗം സംശയിക്കുന്നവർ മാത്രം പി സി ആർ ടെസ്റ്റ് ചെയ്താൽ മതിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വിപ്പണിയിൽ ലഭ്യമാകുന്ന ആന്റിജൻ ടെസ്റ്റ് കിറ്റുകൾ മികച്ച ഫലം ് ഉറപ്പുനൽകുന്നവയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഹൈദരാബാദിലെ ഭാരത് ബയോ ടെകിൽ നിന്നും വാങ്ങിയ വാക്സിനാണ് ഇന്ന് കൊച്ചിയിലെത്തിയത് വാക്സിൻ കേരള മെഡിക്കൽ കോർപ്പറേഷൻ ഏറ്റുവാങ്ങി ആരോഗ്യ വകുപ്പിനു കൈമാറി

ഇത്തരം മാധ്യമ റിപ്പോർട്ടുകൾ ഏഷ്ട്രീസ്ഥാനരഹിതമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ദ്യ ട്രഷറി സേവനം ഇന്ന് വൈകിട്ട് മുതൽ നാലു ദിവസത്തേക്ക് സംസ്ഥാനത്തെ ട്രഷറി സേവനങ്ങൾ ഭാഗികമായി തടസപ്പെടുമെന്ന് റിപ്പോർട്ട് സേവനങ്ങൾ പുതിയ സെർവറിലേക്ക് മാറ്റുന്നതിനാലാണ് തടസം നേരിടുന്നത്

കോവഡ് സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കും ഇക്കുറി പെരുന്നാൾ ആഘോഷങ്ങൾ ഇന്നലെ ശവ്വാൽ മാസപ്പിറവി ദൃശ്യമാകാത്തിനെ തുടർന്നാണ് പെരുനാൾ നാളെയായിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചത് കേരളത്തിന് പുറമേ യു എ ഇയിലും സൌദി അറേബ്യയിലും നാളെയാണ് ചെറിയ പെരുനാൾ

ആത്മനിയന്ത്രണത്തിന്റെയും തൃശ്ശിത്തിന്റെയും ദാനശീലത്തിന്റെയും മാഹാത്മൃം വിളിച്ചോതുന്ന ആഘോഷമാണ് ഈദുൽ ഫിത്തറെന്ന് ഗവർണർ ആശംസാ സന്ദേശ്രി്തിൽ പറഞ്ഞു

മാനവികതയുടെയും സഹാനുഭൂതിയുടെയും ദാനധർമ്മത്തിന്റെയും ഉത്കൃഷ്ടമായ സന്ദേശമാണ് ഈദുൽഫിത്തർ മുന്നോട്ടുവയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഈദ് പ്രാർത്ഥനകൾ വീട്ടിൽ തന്നെ നടത്തി സ്വയം നിയന്ത്രണത്തിന് എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കിയതിൽ നേഴ്സുമാർ വഹിച്ചു

പത്തുമാസം പ്രായമുള്ള സ്വന്തം കൃഷ്ത്തിനെ വീട്ടിലിരുത്തിയാണ് കോവിഡ് പോസിറ്റീവായ ഇന്റ് ക്യൂഞ്ഞിനെ സംരക്ഷിക്കാനായി പ്രിൻസി എന്ന നേഴ്സ് എത്തിച്ചേർണത് ആകാശവാണി തൃശ്ശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്

തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധൃതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു

പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാവും ടീം

എം

ആശുപത്രി നിലവിലെ് രീതിയിൽ പ്രവർത്തിക്കുന്നത് പൊതുജനാരോഗൃത്തിന് ഹാനികരമാണെന്നും പകർച്ചവ്യാധി പകരുന്നതിന് കാരണമാകുന്നെന്നുമുളള കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി